അസമിലും പശ്ചിമ ബംഗാളിലും ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് തുടക്കമായി

ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി പ്രൂധാനമന്ത്രി നരേന്ദ്രമോദി നാളെയെത്തും

ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹാ ആചരിക്കുന്നു

മുഖ്യമന്ത്രി മമത ബാനർജിയും മുൻ തൃണ്മൂൽ നേതാവും ബിജെപി സ്ഥാനാർത്ഥിയുമായ സുവേന്ദു അധ്വക്ടൂരിയും സി

തൃണമൂൽ കോൺഗ്രസും ബിജെപിയും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർഥ്ചികളെ നിർത്തിയിട്ടുണ്ട്

അഞ്ച് മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും ഇന്ന് ജനവിധി തേടുന്നു

അസമിൽ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം ആറിന് നടക്കും

ജോയ്നഗറിലും ഹൌറയിലെ ഉലുബെറിയയിലും രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും രണ്ട് സീറ്റുകളിലും മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം ആറിനാണ് മുർഷിദാബാദ് ജില്ലയിൽ നാല് യോഗങ്ങളിൽ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചക്രവർത്തി പങ്കെടുക്കും

എഫ് നേതാവ് അബ്ബാസ് സിദ്ദിഖി ചാന്ദിത്തലയിൽ റാലിയെ അഭിസംബോധന ചെയ്യും

പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി നിര്യ്ക്ക് സിനിമാ താരങ്ങളാണ് മത്സര രംഗത്തുള്ളത് കമൽഹാസൻ വീജയ് കാന്ത് ഖുശ്ബു തുടങ്ങിയ വലിയ താരനിര തന്നെ മുത്സര രംഗത്ത് അണിനിരക്കുമ്പോൾ തെരഞ്ഞെട്ടുപ്പ് ചൂടിനപ്പുറം സിനിമാ മേഖലയുടെ താരപകിട്ടും സർസ്ഥാനത്ത് പ്രകടമാകുന്നു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രചാരണത്തിനായി നാളെ വീണ്ടും കേരളത്തിലെത്തും

ആദ്യഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി പാലക്കാട് ജില്ലയിലാണ് പ്രചാരണം കേന്ദ്രീകരിച്ചത് രണ്ടാംഘട്ടത്തിൽ നാളെ തെക്കൻ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കും നാളെ വടക്കൻ കേരളത്തിലെത്തുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി അമിത് ഷാ മഞ്ചേശ്വരത്തും കോഴിക്കോടും പൊതുപരിപാടികളിൽ പങ്കെടുക്കും

കോൺഗ്രസിനായി രണ്ടാം ഘട്ട പ്രചാരണത്തിനായെത്തുന്ന രാഹുൽ ഗാന്ധി മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെത്തും രണ്ടാം ഘട്ടത്തിൽ പ്രിയങ്കാഗാന്ധി തിരുവനന്തപുരം നേമത്തും കഴക്കൂട്ടത്തും പ്രചാരണം നടത്തും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് ബൃന്ദാ കാരാട്ട് എന്നിവർക്ക് പിന്നാലെ സുഭാഷിണി അലിയും കേരളത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ വിഭാഗത്തിൽപെട്ടവർക്ക് ഓൺലൈൻ മുഖേനയും ആശുപത്രിയിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്തും വാക് സിൻ സ്വീകരിക്കാവുന്നതാണ് തിരക്ക് ഒഴിവാക്കാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് വാക്സിനെടുക്കാൻ എത്തുന്നതാണ് അഭികാമൃം

മൂന്ന് റഫേൽ വിമാനങ്ങളാണ് ഫ്രാൻസിലെ ഇസ്ട്രെസ് വ്യോമത്താവളത്തിൽ നിന്നും ഇന്ത്യൻ മണ്ണിൽ എത്തിയത് ഇതോടെ ഇന്ത്യൻ വ്യോമസേന കൂടുതൽ കരുത്താർജ്ജിക്കും

സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രൂ ഓളം സൈനിക ഫാമുകളാണ് ഉണ്ടായിരുന്നത്

സൈനിക ഫാമുകളിലെ ജീവനക്കാരെ സേനകളുടെ മറ്റ് വിഭാഗങ്ങളിലേക്ക് പുനർ നിയമിച്ചു

കുരിശുമരണത്തിന്റെ യാതനകളിലേക്ക് പ്രവേശിക്കും മുമ്പ് ശിഷ്യരോടൊത്തുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു

കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ വിശ്വാസികൾ പങ്കെടുക്കുന്നു

ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ് മാ്ർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് ആർ

നോർത്ത് മസിഡോണിയയാണ് മുൻ ചാമ്പ്യൻമാരെ തോൽപ്പിച്ചത്

ജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ

കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രി തോമസ് ഐസക് തുടങ്ങിയ നേതാക്കളും ഇന്ന് കൊല്ലം ജില്ലയിലുണ്ട്

ഇന്നുമുതൽ ആറുമാസം ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് മേൽശാന്തി പൂജകൾ നിർവഹിക്കും

ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ രാത്രിയും പുലർച്ചെയും ഒറ്റപ്പെട്ട മഴക്ക് സാധ്യത